ഭാവി ഇന്ത്യയെ നയിക്കേണ്ടത് യുവാക്കളുടെ ഉത്തരവാദിത്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഇന്തൃയിൽ കോവിഡ് ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണത്തിൽ കുറവ് ് രേഖപ്പെടുത്തിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം

കേരളത്തിലും തമിഴ്നാട്ടിലും വ്യാപകമായ മഴയ്ക്ക് സാധൃതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്

രണ്ടാമത് ദേശീയ യുവജന പാർലമെന്റ് ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനത്തെ വീഡിയോ കോൺഫെറൻസിങ്ങിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ ഭാവി നിർണയിക്കാൻ യുവാക്കൾ മുന്നോട്ടു വരണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വിശദാംശങ്ങളുമായി ജയലക്ഷ്മി

മികച്ച രാഷ്ട്രീയ പ്രവർത്തകരാകാൻ ്യൂപ്പാക്കളോട് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി കുടുംബവാഴ്ച്ചയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയം ജനാധിപത്യത്തിന്റെ ഏറ്റ്ഷുക് ്വലിയ ശത്രുവാണെന്നും അതിനെ വേരോടെ പിഴുതെറിയങ്ങ്ക്മെന്നും പറഞ്ഞു

കേന്ദ്ര സർക്കാരിന്റെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം മികച്ച വൃക്തികളുടെ വികാസത്തിനും അതിലൂടെ രാജ്യത്തിന്റെ വികസനത്തിനും ഊന്നൽ നൽകുന്നതാണെന്ന് ശ്രീ മോദി അറിയിച്ചു യുവാക്കളുടെ ചിന്തകൾക്കും അവരുടെ തീരുമാനങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ദേശീയ വിദ്യാഭ്യാസ നയം മുൻഗണന നൽകുന്നു പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം രാഷ്ട്രനിർമ്മാണത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് യുവാക്കൾക്ക് മികച്ച അവസരങ്ങൾ നൽകുന്ന വൃവസ്ഥിതിയാണ് സർക്കാർ ഒരുക്കുന്നതെന്നും പ്രധാനമന്ത്രി വൃക്തമാക്കി ചടങ്ങിൽ സ്വാമി വിവേകാനന്ദന്റെ ആശയങ്ങൾ പരാമർശിക്കവെ സ്വാമിജി എല്ലായ് പ്പോഴും ശരീരത്തിന്റെയും മനസിന്റെയും ആരോഗ്യത്തിന് ഒരേപോലെ പ്രാധാനൃം നൽകിയിരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു സ്വാമിജിയുടെ അനുശാസനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ യുവാക്കളുടെ ശാരീരികക്ഷമതയിലും മാനസികാരോഗൃത്തിലും പ്രത്യേകം ശ്രദ്ധ നൽകിയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നത്

ന്യൂസ്ഡെസ്ക് ആകാശവാണി

വൈജ്ഞാനിക സാംസ്കാരിക തത്വശാസ്ത്രമണ്ഡലങ്ങളിലെ ഇന്ത്യയുടെ പ്രഭാവം ലോകത്തെ അറിയിച്ച പ്രതിഭയായിരുന്നു അദ്ദേഹമെന്ന് ശ്രീ

പുരോഗമനപരവും പ്രചോദിതവുമായ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ ഉൾക്കൊണ്ടാൽ രാജ്യത്തിന് ലോകത്തിന്റെ നെറുകയിലെത്താനാകുമെന്നും കേന്ദ്ര ആഭൃന്തരമന്ത്രി കൂട്ടിച്ചേർത്തു

അമേരിക്ക ബ്രിട്ടൻ ബ്രസീൽ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ കോവിഡ് വ്യാപനം നിയന്ത്രണാതീതമായി തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത ഒട്ടും കുറയ്ക്കരുതെന്നും കേന്ദ്ര ആരോഗൃ സെക്രട്ടറി രാജേഷ് ഭൂഷൺ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

കോവിഡ് വാക്സിനേഷനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും കൊവിഷീൽഡ് കൊവാക്സിൻ എന്നീ പ്രതിരോധ മരുന്നുകൾക്ക് കൃത്യമായ സുരക്ഷ മാനദണ്ഡങ്ങൾ പരിശോധിച്ചതിനുശേഷമാണ് അംഗീകാരം നൽകിയതെന്നും ശ്രീ രാജേഷ് ഭൂഷൺ വ്യക്തമാക്കി

കൊൽക്കത്തയിലേക്കുളള് ആദ്യ സെറ്റ് വാക്സിനുകൾ പൂനെയിൽ നിന്നും അയച്ചു കഴിഞ്ഞതായും അദ്ദേഹം ട്വിറ്ററിലൂടെ അറിയിച്ചു

പൂനെയിൽ നിന്നെത്തിയ വാക്സിൻ ഗാന്ധിനഗർ അഹമ്മദാബാദ് വടോദര രാജ്ക്കോട്ട് സൂറത്ത് ഭാവ്നഗർ എന്നിവിടങ്ങളിലെ പ്രാദേശിക സംഭരണ കേന്ദ്രങ്ങളിലാണ് സൂക്ഷിക്കുന്നത്

ലോകത്തെ തന്നെ ഏറ്റവും ഉയർന്നരോഗമുക്തി നിരക്കാണിതെന്ന് കേന്ദ്ര ആരോഗൃമന്ത്രാലയം വൃക്തമാക്കി

ഇതോടെ രാജ്യത്തെ ആകെ രോഗമുക്തരായവരുടെ എണ്ണം ഒരു കോടി കവിഞ്ഞു

എറണാകുളം കോട്ടയം ജില്ലകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്

വെർചലായി നടന്ന സംവാദത്തിൽ ഇന്ത്യ വിയറ്റ്നാം പ്രതിരോധ സഹകരണത്തിൽ ഇരുനേതാക്കളും സംതൃപ്തി പ്രകടിപ്പിച്ചു സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിലൂടെ സൈനിക ശക്തികൾ തമ്മിലുള്ള സഹകരണം കൂടുതൽ ഊർജിതമാക്കാനും ഇരു നേതാക്കളും തമ്മിൽ ധാരണയായി

കർഷകരുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് കേന്ദ്രവും കർഷക സംഘടനകളുമായുളള ചർച്ചയ്ക്കും വഴിയൊരുക്കാൻ സുപ്രീം കോടതി വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ചു

കാർഷിക നിയമങ്ങളുടെ സാധുതയെക്കുറിച്ച് തങ്ങൾക്ക് ആശങ്കയുണ്ടെന്നും അത്രേിക് സമയം കർഷകരുടെ പ്രക്ഷോഭത്താൽ ബാധിക്കപ്പെടുന്ന ജർമിങ്ങളുടെ ജീവനും സ്ഥത്തിനും സംരക്ഷണം നൽകേണ്ടതുണ്ടെസ്മൂർ ് ജസ്റ്റിസുമാരായ എ

ബൊപ്പണ്ണ വി

ബി ഐ അന്വേഷണം തുടരാമെന്ന് കേരള ഹൈക്കോടതി

ആർ റദ്ദാക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി ഉദ്യോഗസ്ഥ തലത്തിൽ ്ഉണ്ടായ ഗൂഢാലോചന ഗൌരവമായി കാണണമെന്നും ഹൈക്കോടതി പറഞ്ഞു ഇതു സംബന്ധിച്ച യൂണിടാക് കമ്പനിയുടെ ഹർജിയും ഹൈക്കോടതി തള്ളി

എസ്

അഴിമതി രഹിത നിയമനങ്ങൾക്കാണ് സർക്കാർ മുന്തിയ പരിഗണന നൽകുന്നതെന്ന് മുഖ്യമന്ത്രീ നിയമസഭയിൽ വൃക്തമാക്കി

നീതിന്യായ പോലീസ് വിഭാഗങ്ങളിൽ കൂടുതൽ തസ്തികകൾ സൃഷ്ടിച്ചു അഭ്യസ്ത വിദ്യരായ തൊഴിലന്വേഷകർക്ക് അർഹിക്കുന്ന തൊഴിൽ നൽകുകയാണ് സർക്കാരിന്റെ നയമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു

ഡി എഫ് സർക്കാരിന്റെ ഭരണം അഴിമതി നിറഞ്ഞതായിരുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു

എന്നാൽ പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ ആവർത്തിച്ച് അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സർക്കാർ നയം ജനങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു

അപകട സാധ്യതാ മേഖലകളിൽ താമസിക്കുന്ന ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്

ഇന്നലെ വൈകിട്ട് കർണ്ണാടകയിൽ വച്ചാണ് അപകടം ഉണ്ടായത്